കുത്തിവെപ്പ് മറ്റന്നാൾ തുടങ്ങും

ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത

എൽ ഫുട്ബോളിൽ ഒഡീഷക്കെതിരെ ചെന്നൈയിൻ എഫ് സിക്ക് ജയം

മുൻഗണനാ പട്ടികയിൽ ഉള്ളവർക്കാണ് ആദ്യ ഘട്ടത്തിൽ വാക്സിൻ നൽകുന്നത്

പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള കൊവിഷീൽഡ് വാക്സിനുകൾ വിമാന മാർഗമാണ് കൊച്ചിയിലും തിരുവനന്തപുരത്തും എത്തിച്ചത്

ഇവിടെ നിന്നും നടപടിക്രമങ്ങൾ പാലിച്ച് ഇന്നലെ തന്നെ വാക്സിൻ വിവിധ ജില്ലകളിലേക്ക് വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എല്ലാ കേന്ദ്രങ്ങളിലും കോവിഡ് വാക്സിനേഷനായി വിപുലമായ സംവിധാനങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്

ദര കോഴിക്കോട്ട് എത്തിച്ച കൊവിഡ് വാക്സിൻ മലാപ്പറമ്പിലെ റീജ്യണൽ വാക്സിൻ സ്റ്റോറിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്

ദര കൊല്ലം ജില്ലയിൽ ഒൻപത് കേന്ദ്രങ്ങളാണ് കോവിഡ് വാക്സിൻ നൽകാൻ സജ്ജമാക്കിയിട്ടുള്ളത് എല്ലാ കേന്ദ്രങ്ങളിലും വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തും ഗവൺമെന്റ് മേഖലയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളജുകൾ വരെയും ആയുഷ് സ്വകാര്യ മേഖലകളിലെ ആശുപത്രികളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദേദ ഇടുക്കി ജില്ലയിലെത്തിച്ച വാക്സിൻ ജില്ലാ മെഡിക്കൽ ഓഫീസിലെ വാക്സിൻ സ്റ്റോറിലാണ് സൂക്ഷിക്കുന്നത് ഇന്നും നാളെയുമായി വാക്സിൻ വിതരണ കേന്ദ്രങ്ങളിൽ എത്തിക്കും ദേദ കോവിഡ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട ബോധവത്കരണത്തിന് ആരോഗ്യവകുപ്പ് ഇന്ന് തിരുവനന്തപുരത്ത് ശില്പശാല സംഘടിപ്പിക്കും രാവിലെ പത്ത് മുതൽ ഒന്നുവരെ സി ഡിറ്റിലാണ് ശില്പശാല

തേജസ് വിമാനങ്ങൾ വ്യോമസേനയെ ശക്തിപ്പെടുത്തുമെന്നും ഈ കരാർ ഇന്ത്യൻ പ്രതിരോധ നിർമാണ രംഗത്ത് സ്വാശ്രയത്ത്വത്തിന്റെ ഒരു ഗെയിം ചെയിഞ്ചറായിരിക്കുമെന്നും രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു

കഴിഞ്ഞ വർഷം ജനുവരി ഒന്നിന് ശേഷം നാട്ടിലെത്തി വിദേശത്തെ ജോലി സ്ഥലത്തേക്ക് മടങ്ങാൻ കഴിയാത്ത പ്രവാസികൾക്കാണ് ധനസഹായം നൽകുന്നത്

ദേദ സെക്രട്ടറിയേറ്റിലേക്ക് ജീവനക്കാരുടെയും സന്ദർശകരുടെയും സഞ്ചാരം ക്രമീകരിക്കുന്നതിന് പ്രവേശന നിയന്ത്രണ സംവിധാനം സ്ഥാപിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു

ദേദ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് മന്ത്രിസഭയുടെ അവസാന ബജറ്റ് മന്ത്രി ഡോ

ധനാഭ്യർഥനകൾ വിശദമായി ചർച്ച ചെയ്ത് അംഗീകരിക്കാൻ സമയമില്ലാത്തതിനാൽ അടുത്ത നാല് മാസത്തെ ചെലവുകൾക്ക് വോട്ടോൺ അക്കൌണ്ട് പാസാക്കും

നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ബജറ്റായതിനാൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദര ശബരിമലയിൽ ഭക്തജനങ്ങൾക്ക് ദീപകാഴ്ചയൊരുക്കി ഇന്ന് മകര വിളക്ക്

പന്തളത്ത് നിന്ന് ചൊവ്വാഴ്ച പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര വൈകീട്ട് ശരംകുത്തിയിലെത്തും ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ഘോഷയാത്രയെ സന്നിധാനത്തേക്ക് സ്വീകരിച്ചാനയിക്കും സന്നിധാനത്ത് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തിരുവാഭരണം ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തും തുടർന്ന് ദീപാരാധന നടക്കും ദീപാരാധന പൂർത്തിയാകുന്നതോടെ പൊന്നമ്പലമേട്ടിൽ മകര വിളക്ക് തെളിയും കൊവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായതിനാൽ ഇത്തവണ അയ്യായിരം ഭക്തർക്ക് മാത്രമാണ് മകര വിളക്ക് ദർശിക്കാൻ അനുമതി സന്നിധാനത്ത് ഒഴികെ മറ്റൊരിടത്തും മകരവിളക്ക് ദർശനത്തിന് ഭക്തരെ അനുവദിക്കില്ല സന്നിധാനത്ത് അതീവ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്

പത്ത് റിപ്പബ്ലിക്കൻ അംഗങ്ങളും ട്രംപിനെ എതിർത്ത് വോട്ട് ചെയ്തു

ഈ മാസം ആറിന് അമേരിക്കൻ പാർലമെന്റ് മന്ദിരമായ ക്യാപ്പിറ്റോളിൽ അക്രമം അഴിച്ചുവിടാൻ കലാപകാരികളെ പ്രേരിപ്പിച്ചുവെന്ന കണ്ടെത്തലാണ് ഇംപീച്ച്മെന്റ് നടപടികളിലേക്ക് നയിച്ചത് അധികാര ദുർവിനിയോഗത്തിന്റെ പേരിലായിരുന്നു ആദ്യ ഇംപീച്ച്മെന്റ് നടപടി

എൽ ഫുട്ബോളിൽ ഒഡിഷയ്ക്കെതിരെ ചെന്നൈയിൻ എഫ്

ഇന്ന് ഗോവ ജംഷഡ്പൂരിനെ നേരിടും രാത്രി ഏഴരയ്ക്ക് ഗോവയിലാണ് മത്സരം ദേദ ഐ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ഗോകുലം കേരള പഞ്ചാബ് എഫ് സിയെ നേരിടും

ആദ്യ മത്സരത്തിൽ ചെന്നൈ സിറ്റിയോട് ഒന്നിനെതിരെ രണ്ട് ഗോളിന് ഗോകുലം തോറ്റിരുന്നു

നാല് ടെസ്റ്റുകളടങ്ങിയ പരമ്പരയിൽ ആദ്യത്തേതിൽ ഓസ്ട്രേലിയയും രണ്ടാമത്തേതിൽ ഇന്ത്യയുമാണ് വിജയിച്ചത് മൂന്നാം ടെസ്റ്റ് സമനിലയിൽ പിരിഞ്ഞു നാലാം ടെസ്റ്റിൽ വിജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം ദ്ദേ കോവളത്തിനു സമീപം വെള്ളാറിൽ നിർമ്മിക്കുന്ന കേരള കരകൌശല കലാ ഗ്രാമത്തിന്റെ ആദ്യ ഘട്ടം മറ്റന്നാൾ വൈകിട്ട് ആറിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിനു സമർപ്പിക്കും കരകൌശല കൈത്തൊഴിൽ കലാകാരൻമാർക്ക് തൊഴിൽ നൽകാൻ ടൂറിസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന പദ്ധതിയാണ് കരകൌശല ഗ്രാമമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദ്ദേ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി താമസ സൌകര്യം ഉറപ്പാക്കുന്ന അപ്നാഘർ പദ്ധതി സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുമെന്ന് മന്ത്രി ടി

കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ഇതിന് നടപടികൾ സ്വീകരിച്ചതായും മന്ത്രി വ്യക്തമാക്കി ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി ഗസ്റ്റ് വർക്കേഴ്സ് ഫ്രണ്ട്ലി റസിഡൻസ് ഇൻ കേരള എന്ന പേരിൽ ആരംഭിച്ച പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ദേദ പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്ന നടപടികൾ ത്വരിതപ്പെടുത്താൻ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ എറണാകുളം ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകി

പദ്ധതിയുടെ അവലോകന യോഗത്തിൽ ഓൺലൈനായി പങ്കെടുക്കുകയായിരുന്നു മന്ത്രി ദേദ കൊല്ലം ബൈപാസ്സിൽ ടോൾ പിരിവിനുളള തീരുമാനം പുനപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് എൻ

പ്രേമചന്ദ്രൻ എം

കേന്ദ്ര ഗതാഗത മന്ത്രിക്കും ദേശീയപാത അതോറിറ്റിയ്ക്കും വീണ്ടും കത്തു നൽകി നേരത്തെ ഇതേ ആവശ്യമുന്നയിച്ച് കേന്ദ്രത്തിന് നൽകിയ കത്തിന് ടോൾ പിരിവിന് ഉത്തരവ് നൽകിയതായി കേന്ദ്രമന്ത്രി മറുപടി നൽകിയിരുന്നു ഇതേ തുടർന്നാണ് വീണ്ടും കത്ത് നൽകിയത് ദേദ ഇന്ത്യൻ സായുധ സേനകൾ ഇന്ന് വെറ്ററൻസ് ദിനം ആചരിക്കും ആദ്യ കമാൻഡർ ഇൻ ചീഫ് ഫീൽഡ് മാർഷൽ കെ

തീരരക്ഷാസേന കസ്റ്റംസ് ഇതര സുരക്ഷ ഏജൻസികൾ തുടങ്ങിയവയും യജ്ഞത്തിൽ പങ്കെടുത്തിരുന്നു

തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകൾക്കാണ് അവധി രും വയനാട് വൈത്തിരിയിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചു